എസ് ശ്രീധരൻപിള്ള

സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിലെ നിയ മനം സംബന്ധിച്ച വിവാദത്തിൽ അടിസ്ഥാനമില്ലെന്ന് മന്ത്രി ഡോ

ടി ജലീൽ രു ൽ ശ്വ തിരുവനന്തപുരം ഉൾപെടെ ആറ് വിമാനത്താവളങ്ങൾ പാട്ടത്തിന് നൽകി പൊതു സ്വാകാര്യ പങ്കാളിത്തത്തിലൂടെ വികസിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗം തീരുമാനിച്ചു മംഗുലൂരു അഹമദാബാദ് ജയ്പൂർ ലക്നൌ ഗുവാ ഹത്തി എന്നിവയാണ് പൊതു സ്ഥകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കുന്ന മറ്റ് വിമാനത്താവളങ്ങൾ പ്രവർത്തനം നിയന്ത്രണം വികസനം എന്നിവ യ്ക്കായി ഈ വിമാനത്താവളങ്ങൾ പാട്ടത്തിന് നൽകാനാണ് മന്ത്രിസഭ തത്വ ത്തിൽ തീരുമാനിച്ചതെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ന്യൂഡൽഹിയിൽ അറിയിച്ചു ഈ വിമാനത്താവളങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ലോകോ ത്തര നിലവാരത്തിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു ആന്ധ്രപ്രദേശിൽ കേന്ദ്ര ആദിവാസി സർവകലാശാല ആരംഭിക്കാനും മന്ത്രിസഭ അംഗീകാരം നൽകി

ഡ്രഡ്ജിങ് കോർപ്പറേഷന്റെ എല്ലാ ഓഹരികളും വിശാഖപട്ടണം പാരദ്ധീപ് ജവഹർലാൽ നെഹ്റു കണ്ട്ല തുറമുഖ ട്രസ്റ്റുകളുടെ കൺസോർഷ്യത്തിന് വിറ്റഴിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു കേരളത്തിന്റെ മതനിരപേക്ഷത സാധ്യമാക്കിയ നവോത്ഥാനത്തിന്റെ വെളിച്ചം കെടുത്താൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ പറഞ്ഞു ഐതിഹാസിക പ്രക്ഷോഭങ്ങളിലൂടെ നേടിയെടുത്ത മതനിരപേക്ഷ കേരളത്തെ പിറകോട്ട് നയിക്കാൻ വർഗീയവാദികളെയും രാഷ്ട്രീയ മുതലെടുപ്പുകാരെയും അനുവദിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു തൃശൂരിൽ എൽ

എഫ് സംഘടിപ്പിച്ച നവ്വോത്ഥാന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി പിടിവാശി ഉപേക്ഷിക്കണമെന്ന് ബി

പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള പയ്യന്നൂരിൽ പറ ഞ്ഞു ശബരിമല ആചാരങ്ങളും വിശ്വാസങ്ങളും തകർക്കാനാണ് എൽ

എഫ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

എയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശബരിമല സംരക്ഷണ രഥയാത്രയ്ക്ക് കണ്ണൂരിൽ നൽകിയർ ആദ്യ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരെയും ബാധിക്കുന്ന വിഷയ മാണ് ശബരിമലയിലേതെന്ന് എൻ

എ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു രഥയാത്ര ഇന്ന് രാവിലെ പയ്യന്നൂരിൽ നിന്ന് തലശേരിയിലേക്ക് പുറപ്പെടും അതിനിടെ ശബരിമല സംരക്ഷണ രഥയാത്രയ്ക്കു നേരെ അജ്ഞാതർ കല്ലെ റിഞ്ഞു നീലേശ്വരത്തെ സ്വീകരണ സമ്മേളനത്തിനുശേഷം ആദ്യദിവസത്തെ സ്വീകരണ സമാപന സമ്മേളന കേന്ദ്രമായ പയ്യന്നൂരിലേക്ക് പോകുകയായി രുന്ന വാഹനവ്യൂഹത്തിന് നേരെയാണ് കല്ലേറുണ്ടായത്

സംസ്ഥാനത്ത് ഇന്ന് പ്രതിഷേധ ദിനമായി ആചരിക്കുമെന്ന് എൻ

എ അറിയിച്ചു ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച സുപ്രിംകോടതി വിധി പിണ റായി ഗവൺമെന്റ് ചോദിച്ചു വാങ്ങിയതാണെന്ന് മുൻ കെ

സി പ്രസി ഡന്റ് എം എം ഹസ്സൻ പറഞ്ഞു

ഇക്കാര്യത്തിൽ നിയമ നിർമാണ പ്രവർത്തനം ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്യാതെ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് സിപിഐ എമ്മും ബി

പിയും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ശബരി മല ആചാരവും വിശ്വാസവും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കെപിസിസി വർക്കിങ് പ്രസിഡന്റ് കെ സുധാകരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥ കാസർകോട് ചെർളയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഹസ്സൻ

സി പ്രസിഡന്റ് ഹക്കീംകുന്നിൽ അധ്യക്ഷനായിരുന്നു യാത്ര ഇന്ന് കണ്ണൂരിൽ ജില്ലയിൽ പ്രവേശിക്കും

സി വർക്കിങ് പ്രസിഡന്റ് കെ

വൈകീട്ട് സ്റ്റേഡിയം കോർണറിൽ സ്വീക രണ യോഗം കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ശബരിമല വിഷയത്തിൽ സംഘപരിവാറിന് മുന്നിൽ ഗവൺമെന്റ് കീഴട ങ്ങില്ലെന്നും കോൺഗ്രസ് സംഘപരിവാർ നിലപാടിനെ സംരക്ഷിക്കുകയാ ണെന്നും എൽ

എഫ് കൺവീനർ എ വിജയരാഘവൻ പറഞ്ഞു ഒറ്റപ്പാല ത്ത് എൽ

എഫ് പൊതുയോഗം ഉത്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേ ഹം

സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും പോലീസ് മേധാവികൾക്ക് ആൽബം കൈമാറി കഴിഞ്ഞ ദിവസം സന്നിധാ നത്തുണ്ടായ സംഘർഷത്തിൽ ഇരുന്നൂറ് പേർക്കെതിരെ പോലീസ് കേസെ ടുത്തിട്ടുണ്ട്

ശബരിമല വിഷയത്തിൽ സുപ്രിംകോടതി ചൊവ്വാഴ്ച റിട്ട് ഹർജികൾ പരിഗണിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാട് യോഗം ചർച്ച ചെയ്യും

പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളക്കെതിരെ ശബ രിമല വിവാദ പ്രസംഗത്തിൽ പോലീസ് കേസെടുത്തു കോഴിക്കോട് കസബ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പനുസരിച്ച് കേസെടുത്തത് കോഴിക്കോട്ട് യുവ മോർച്ച സംസ്ഥാന സമിതി യോഗത്തിലെ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീധരൻപിള്ളക്കെതിരെ മതവികാരം ഇളക്കിവിടുന്നതിനെതിരെ കേസെടു ക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചിയിലും കോഴിക്കോട്ടും പ്രാതികൾ ലഭിച്ചിരു ന്നു അതെസമയം സിപിഐഎമ്മും കോൺഗ്രസും തനിക്കെതിരെ കേസ് കൊടുത്ത് നടക്കുകയാണെന്ന് ശ്രീധരൻപിള്ള നീലേശ്വരത്ത് പ്രതികരിച്ചു ഇതുവരെ തന്റെ പേരിൽ ഏഴ് കേസുകളെടുത്തിട്ടുണ്ടെന്നും കേസ് കാട്ടി ഭയപ്പെടുത്തേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേസെടുക്കാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും കാര്യങ്ങൾ പാർട്ടിക്കും ജനങ്ങൾക്കും വിട്ടുകൊടുക്കുക യാണെന്നും ശ്രീധരൻപിള്ള വൃക്തമാക്കി കെവിൻകൊലക്കേസിൽ മുഖ്യ പ്രതിയിൽ നിന്ന് രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങിയതിന് എ

ഐയെ സർവീസിൽ നിന്ന് പിരിച്ചുവി ട്ടു ഗാന്ധിനഗർ സ്റ്റേഷനിലെ എ

എം ബിജുവിനെ യാണ് കോട്ടയം പോലീസ് ജില്ലാ മേധാവി ആർ ഹരിശങ്കർ പിരിച്ചുവിട്ടത് ബിജുവിനൊപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഡ്രൈവർ അജയ്കുമാ റിന്റെ മൂന്ന് വർഷത്തെ ഇൻഗ്രിമെന്റ് റദ്ദാക്കും

സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ ജനറൽ മാനേജർ തസ്തികയിലെ നിയമനം സംബന്ധിച്ച് ഉയർന്നു വന്ന വിവാദ ത്തിന് അടിസ്ഥാനമില്ലെന്ന് മന്ത്രി ഡോ

നേരത്തെ വിജ്ഞാപന പ്രകാരം അപേക്ഷിച്ച ഏഴു പേരിൽ ആറു പേർക്കും ജനറൽ മാനേജർ തസ്തികയിലെ നിയമനത്തിന് യോഗ്യതയുണ്ടായിരുന്നില്ലെന്നും മൂന്ന് പേർ മാത്രമാണ് അഭിമുഖ്യത്തിൽ പങ്കെ ടുത്തതെന്നും ഓഫീസ് വ്യക്തമാക്കി അന്ന് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാതി രുന്ന കെ

അപേക്ഷകരിൽ യോഗ്യനായ ഏക ഉദ്യോഗാർഥിയും ഇദ്ദേഹമായിരുന്നു എന്നാൽ അന്ന് ഇദ്ദേഹം അഭിമുഖ ത്തിൽ പങ്കെടുക്കാത്തതിനാൽ നിയമനം നടത്തിയില്ലെന്നും പിന്നീട് അദീബ് ഇപ്പോൾ സമർപ്പിച്ച അപേക്ഷ കണക്കിലെടുത്താണ് അദ്ദേഹത്തെ ഒരു വർഷ ത്തേക്ക് ജനറൽ മാനേജർ തസ്തികയിൽ ഡപ്യൂട്ടേഷനിൽ നിയമിച്ചതെന്നും മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി മന്ത്രി കെ ടി ജലീലിന്റെ ബന്ധുനിയമനം സംബന്ധിച്ച് മൂഖ്യമന്ത്രി തുട രുന്ന മൌനം ജലീലിന്റെ കുറ്റസമ്മതത്തിന് തുല്യമാണെന്ന് മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ കാലടി എരമംഗലം തേഞ്ഞി പ്പാലം എന്നിവിടങ്ങളിൽ യു

എഫ് പരിപാടികളിൽ സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം ജലീലിന്റെ രാജി മാത്രമാണ് ഇക്കാര്യത്തിൽ ഏക പരി ഹാരമെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി ബന്ധുനിയമനം നടത്തിയ മന്ത്രി കെ ടി ജലീലിനെ അഴിമതി നിരോധന നിയമപ്രകാരം വിചാരണ ചെയ്യണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻകുര്യാക്കോസ് ആവശ്യപ്പെട്ടു മന്ത്രിയുടെ രാജി ആവശ്യ പ്പെട്ട് തവനൂർ മണ്ഡലത്തിലെ കാലടിയിലെ മന്ത്രിയുടെ ക്യാംപ് ഓഫീസി ലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യു കയായിരുന്നും അദ്ദേഹം മന്ത്രി ഡോ

ടി ജലീലിനു നേരെ തലശേരിയിൽ കരിങ്കൊടി കാണിച്ച അഞ്ച് യൂത്ത് ലീഗ് പ്രവർത്തകരെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു

തോമസ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെ ടുത്തി കൊയിലാണ്ടി നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലുമായി നട പ്പിലാക്കുന്ന സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ശബരിമല മണ്ഡല വിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് വിപുലമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ മന്ത്രി കെ കെ ശൈലജയുടെ അധ്യക്ഷത യിൽ തിരുവനന്തപുരത്ത് ചേർന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അവ ലോകന യോഗം തീരുമാനിച്ചു

ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് പൊതു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കും കൌമാര ക്കാർക്കും ആരോഗ്യ വിദ്യാഭ്യാസ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് കോഴി ക്കോട് കട്ടിപ്പാറ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന കൈത്തിരി പദ്ധതി ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി പ്രളയത്തിൽ തകർന്ന വീടുകളുടെ പുനർനിർമാണത്തിന് ഉപയോഗിക്കുന്ന കമ്പി സിമന്റ് തുടങ്ങിയ സാധന സാമഗ്രികൾക്ക് വിലയിളവ് നൽകുന്നത് സംബന്ധിച്ച് ചർച്ച നടന്നു വരികയാണെന്നും ഉടൻ തീരുമാനമുണ്ടാകു മെന്നും മന്ത്രി ഡോ

പ്രളയം തകർത്ത എറ ണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരിൽ നടപ്പാക്കുന്ന തണൽ ഭവന പദ്ധതി യിലെ ഒമ്പതാമത്തെ വീടിന് തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഫിസിക്കൽ മെഡിസിൻ വാർഡു കളും മന്ത്രി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ എഫ് സി ഗോവ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഡൽഹി ഡൈനാമോസിനെ തോൽപ്പിച്ചു ഇതോടെ ആറ് കളി യിൽ നാല് ജയവുമായി ഗോവ പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി ഇന്ന് നോർത്ത് സിറ്റി ഈസ്റ്റ് യുനൈറ്റഡ് മുംബൈ സിറ്റി എഫ് സിയെ നേരിടും

ആദ്യമത്സരത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ നേരിടും

ഇന്ത്യൻ താരങ്ങളായ പി

കാർട്ടറിൽ സിന്ധുവും ശ്രീകാന്തും ചൈനീസ് താരങ്ങളുമായി ഏറ്റുമുട്ടും കണ്ണൂർ ജില്ലാ പോലീസ് കായികമേള ഇന്നും നാളെയുമായി പോലീസ് മൈതാനത്ത് നടക്കും രാവിലെ റെയ്ഞ്ച് ഐ ജി ബൽറാം കുമാർ ഉപാ ധ്യായ ഉദ്ഘാടനം ചെയ്യും ഇരുന്നൂറിലേറെ കായിക്താരങ്ങൾ പങ്കെടുക്കും

ക്ഷേത്രപ്രവേശന വിളംബരവും അതിന് മുമ്പും തുടർന്നും നടന്ന നവോത്ഥാന മുന്നേറ്റങ്ങളും കോർത്തിണക്കി നൂറിലധികം ചിത്രങ്ങ ളുടെ പ്രദർശനം വി

ടി ഹാളിൽ നടക്കും

കിളികൊല്ലൂർ കരിക്കോട് ചേരിയിൽ ഉണ്ണിയുടെ വീടാണ് കത്തിയത് ഉരുൾപൊട്ടൽ നാശം വിതച്ച കോഴിക്കോട് കട്ടിപ്പാറയിൽ ജില്ലാ എൻ

എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർമിക്കുന്ന വീടുകൾക്ക് മന്ത്രി ഇ പി ജയരാജൻ തറക്കല്പിട്ടു